ഐ ടി

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും

ഇന്ന് കർക്കിടകവാവ്

ശ്രാദ്ധ കർമ്മങ്ങൾ പുലർച്ചെ ആരംഭിച്ചു

ടൂർണ്മെന്റിൽ പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ അജയ് ജയറാം മിഥുൻ മഞ്ജുനാഥ് എന്നിവർ ഇന്ന് മത്സരിക്കും

ഊർജ്ജ ശാസ്ത്ര വിഭാഗത്തിന്റേയും പരിസ്ഥിതി ശാസ്ത്ര വിഭാഗത്തിന്റേയും പുതിയ കെട്ടിടവും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും കേന്ദ്ര മാനവ വിഭവശ്ദേഷി മന്ത്രി പ്രകാശ് ജാവേദ്കർ മഹാരാഷ്ട്ര ഗവർണർ വിദ്യാസ്മുഗർ റാവു മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നവിസ് തുടങ്ങിയവരും പങ്കെടുക്കും

അടുത്ത ജനറൽ അസംബ്ലി സമ്മേളനത്തിൽ മുൻഗണന നൽകാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവർ പ്രധാനമന്ത്രിയുമായി പങ്കു വെച്ചു തീവ്രവാദം കാലാവസ്ഥ വ്യതിയാനം ഐക്യരാഷ്ട്ര പുനഃസംഘടന തുടങ്ങിയ വിഷയങ്ങളിൽ ഐക്യരാഷ്ട്രസഭ എടുക്കേണ്ട തീരുമാനങ്ങളെക്കുറിച്ചും ഇരുവരും ചർച്ച നടത്തിയതായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് പത്രക്കുറിപ്പിൽ അറിയിച്ചു

യിൽ പ്രതിരോധ സാമഗ്രികളും നിർമ്മാണത്തിന് പ്രത്യേക മേഖല സജ്ജമാക്കാനുള്ള ഗവൺമെന്റിന്റെ ശ്രമത്തിന്റെ ഭാഗമായാണ് ഇത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സായുധസേന ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രതിരോധ ഉൽപ്പന്ന സാമഗ്രികളുടെ പ്രദർശനവും സംഘടിപ്പിച്ചിട്ടുണ്ട് ആഗ്ര അലിഗഡ് ലക്നൌ കാൺപൂർ ചിത്രകൂട് ഝാൻസി എന്നിവിടങ്ങളിലായി ഇത്തരത്തിൽ ആറ് ഇടനാഴികൾ രൂപീകരിക്കുമെന്ന് പ്രതിരോധ മന്ത്രാലയം ഡൽഹിയിൽ പ്രസ്താവനയിൽ അറിയിച്ചു

പരോക്ഷ നിക്കുതി കസ്റ്റംസ് കേന്ദ്ര ബോർഡ് ഇന്നലെ ഇതു സംബന്ധിച്ച വിജ്ഞ് പ്പെടുവിച്ചു

സ്ഥിതിഗതികൾ നേരിടുന്നതിന് സാധ്യമായ എല്ലാ സഹാർയ്പും സംസ്ഥാനത്തിന് കേന്ദ്രം ഉറപ്പ് നൽകി കൂടുതൽ വിവരങ്ങളുമായി കൃഷ്ണ

കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും സംസ്ഥാനത്തിന് സാധ്യമായ എല്ലാ സഹായങ്ങളും ഉറപ്പ് നൽകി സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തുന്നതിനായി കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ കേരളത്തിലെത്തും പ്രളയബാധിത പ്രദേശങ്ങളും ദുരിതാശ്വാസ ക്യാമ്പുകളും അദ്ദേഹം സന്ദർശിക്കും

ഏഴ് ജില്ലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ദേശീയ ദുരന്തപ്രതികരണ സേനയും സൈന്യവും സജീവമായി രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഇടുക്കി ഡാമിലെ അഞ്ച് ഷട്ടറുകളും തുറന്നതിനെ തുടർന്ന് പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നു

കനത്ത മഴയെ തുടർന്ന് ഒരു ലക്ഷം ക്യൂസെറ്റ്സ് ജലം കാവേരി നദിയിലേക്ക് ഒഴുക്കി വിടുന്നതിനാലാണ് ജാഗ്രത നിർദ്ദേശും നൽകിയിട്ടുള്ളത്

ആർ എസ്

കൃഷ്ണഗിരി ധർമ്മപുരി സേലം ഈർോഡ് തിരുച്ചിറപ്പള്ളി തഞ്ചാവൂർ എന്നിവിടങ്ങളിലെ ജില്ലാ കളക്ടർമാർ ജനങ്ങൾക്ക് ജാഗ്രത നിർദ്ദേശം നൽകി കഴിഞ്ഞു ക്രാപ്പേരി തീരത്തും താഴ്ന്ന പ്രദേശങ്ങളിലും താമസിക്കുന്നുവ്രോട് സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറാനും ഉത്തരവ് നൽകിയിട്ടുണ്ട്

അണക്കെട്ടുകൾ തുറന്നതിനെ തുടർന്ന് മിക്ക സ്നാനഘട്ടങ്ങളിലും ജലനിരപ്പ് ഉയർന്നതിനാൽ വൻ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് പെരിയാറിൽ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ആലുവ മണപ്പുറത്തും അതീവ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് കോസ്റ്റ് ഗാർഡിന്റെയും ദേശീയ ദുരന്ത നിവാരണ സേനയുടെയും സേവനം ഇവിടങ്ങളിൽ ഉറപ്പ് വരുത്തിയിട്ടുണ്ട് ബലിതർപ്പണത്തിനെത്തുന്നവർ സുരക്ഷാ ക്രമീകരണങ്ങളുമായി സഹകരിക്കണ്മെന്ന് അധികൃതർ അറിയിച്ചു

അജയ് ജയറാം ജപ്പാന്റെ യു ഇഗറാഷിയെയും മിഥുൻ ഇന്തോനേഷ്യയുടെ ഷെസാർ ഹിമൻ റുസ്റ്റാവിറ്റോയേയും നേരിടും

ഇന്നലെ റ്റോസ് നേടിയ ഇംഗ്ലണ്ട് ഇന്ത്യയെ ബാറ്റിംഗിന് അയയ്ക്കുകയായിരുന്നു

മുത്തലാഖ് ബില്ലിനെ ലോകസഭയിൽ അനുകൂലിച്ച കോൺഗ്രസ് രാജ്യസഭയിൽ അതീനെ അനുകൂലിച്ചില്ല എന്ന് പാർലമെന്ററി കാര്യ വകുപ്പ് മുന്ത്രി ആനന്ദ്കുമാർ ഇന്നലെ ന്യൂഡൽഹിയിൽ പറഞ്ഞൂ ബ്ലിൽ പാസാക്കാൻ ഗവൺമെന്റ് അവസാന നിമിഷംവരെ ശ്രമിച്ചതായു് കോൺഗ്രസ് അത് തടഞ്ഞതായും അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ മുസ്ലീം സ്ത്രീകളുടെ ക്ഷേമമാണ് മോദി ഗവൺമെന്റ് ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി ആനന്ദ്കുമാർ വ്യക്തമാക്കി ബിൽ തടയുന്നതുവഴി കോൺഗ്രസിന്റെ നിലപാട് വ്യക്തമായതായി നിയമമന്ത്രി രവി ശങ്കർ പ്രസാദ് പറഞ്ഞു

ലോകസംഘടനയുടെ ഔദ്യോഗിക ഭാഷകളിൽ ഒന്നായി ഹിന്ദിയെ മാറ്റാനുള്ള ശ്രമങ്ങൾ ഗവൺമെന്റ് നടത്തുന്നതായി അവർ ന്യൂഡൽഹിയിൽ വാർത്താലേഖകരോട് പറഞ്ഞു

ഐക്യരാഷ്ട്ര സഭ ഹിന്ദി ട്വിറ്റർ അക്കൌണ്ടും ആരഭിച്ചിട്ടുണ്ട് സഭയുടെ വാർത്തകളും പരിപാടികളും ഹിന്ദി സംസാരിക്കുന്നവർക്ക് ഇതു വഴി അറിയാം

തെഹ്രീക് ഇ ഇൻസാഫ് സെൻട്രൽ അഡീഷണൽ ഇൻഫർമേഷൻ സെക്രട്ടറി ഫൈസൽ ജാവേദ് ഖാൻ ഇസ്സാമാബാദിൽ വ്യക്തമാക്കിയതാണ് ഇക്കാര്യം

തീവ്രവാദം അതിർത്തി പ്രദേശങ്ങളിലെ ്നുഴഞ്ഞു കയറ്റം എന്നീ വിഷയങ്ങളിൽ ഇരുവരും ചർച്ച നടത്തിയതായി ശ്രീ

തെഹരീക് ഇ ഇൻസാഫ് പാർട്ടി നേതാവായ ഇമ്രാൻഖാന്റെ വിജയത്തെ അദ്ദേഹം അഭിനന്ദിച്ചു

വൈദ്യുതി ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും ഗ്രിഡ് ബന്ധം ഊർജ്ജകാര്യക്ഷമത പുനഃരുപയോഗക്ഷമമായ ഊർജ്ജം സ്വന്തം ഗുണത്തിനും മേഖലയുടെ പ്രയോജനത്തിനുമായി ജലവൈദ്യുത പദ്ധതികളുടെ വികസനം എന്നീ കൈവരിക്കുന്നതിനാണ് ധാരണാപത്രം ലക്ഷ്യമിടുന്നത്